ചന്ദ്രഘോഷ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു

രക്തസാക്ഷിത്വ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു

സാധ്യത ജാഗ്രതാ നിർദ്ദേശം

രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു

ജെ

നേതാക്കൾക്കെതിരെ ഉന്നയിക്കപ്പെട്ട അഴിമതി ആരോപണം കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് നിഷേധിച്ചു

ശിവകുമാറിനെതിരെ നട ത്തിയ തെരച്ചലിൽ ലഭിച്ചു കടലാസ് രേഖകളിൽ ഏതാനും വ്യക്തികളുടെ പേരുകളും സംഖ്യകളും ഉൾപ്പെട്ടിരുന്നുവെന്നും എന്നാൽ ആ രേഖകളുടെ അസ്ലുകൾ ലഭിക്കാത്തത് സംശയത്തിനിടയാക്കിയെന്നും സി ബി

ശിവ കുമാറിന്റെ ഡയറിക്കുറുപ്പുകളുട്ട് പ്കർപ്പ് മാത്രമാണ് ലഭിച്ച തെന്നും സി ബി

റ്റി പറ്റഞ്ഞു നികുതി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് തെരച്ചിൽ സ്റ്ട്ത്തുന്നതിനിടെ ആ വ്യക്തിയിൽ നിന്ന് തന്നെ രേഖകളുടെ പകർപ്പ് ലഭിച്ചത് സംശയാസ്പദമായ സാഹചര്യത്തിലാണെന്നും ബോർഡ് വ്യക്തമാക്കി

എന്നാൽ ആരോപണം ബി ജെ പി നിഷേധിച്ചിരുന്നു

ന്യൂഡൽഹിയിൽ ബി ജെ പൂർക്കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഇന്നലെ രാത്രി വൈകിയാണ് പിട്ടികയ്ക്ക് അന്തിമരൂപം നൽകി പുറത്തിറക്കിയത് മഹ്റാരാഷ്ട്രയിൽ നിന്ന് ആറ് ഒഡീഷയിൽ അഞ്ച് അസം മേക്ലാല്യ എന്നിവിടങ്ങളിൽ നിന്നും ഓരോ സ്ഥാനാർത്ഥികൾ വീതം എന്നിങ്ങനെയാണ് പട്ടിക ഒഡീഷയിലെ പുരി മണ്ഡലത്തിൽ നിന്നും ബി ജെ പി ദേശീയ വക്താവ് സംപീത് പത്ര മത്സരിക്കുമ്പോൾ കലഹന്ദിയിൽ നിന്നാണ് ബസന്ത് കുമാർ പാണ്ഡ മത്സരിക്കുക ആന്ധ്രാപ്രദേശിലെ വിജയവാഡ പാർലമെൻറി മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥി ദിലീപ് കുമാർ കിലാരു ആണ്

ആന്ധ്രാപ്രദേശ് ഒഡീഷ എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളുടെ രണ്ടാം പട്ടികയും ബി ജെ പി പുറത്തിറക്കി

നാഷണലിസ്റ്റ് കോൺഗ്രസ്സ് പാർട്ടി മഹാരാഷ്ട്രയിലെ മാധ ഒസ്മാനാബാദ് ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് പട്നാസാഹിബ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും കേന്ദ്രമന്ത്രി ഗിരിരാജിന്റെ ലോക്സഭാ മണ്ഡലം നവാദയിൽ നിന്നും ബഗുസരയിലേക്ക് മാറ്റി ശത്രുഘൻ സിൻഹ ഉൾപ്പെടെ ആറ് സിറ്റിംഗ് എം പി മാർക്ക് ബി ജെ പി ഇത്തവണ മത്സരിക്കാൻ അവസർട്ടു നൽകിയില്ല

എസ്സിന്റെ നിസ്സാമ ബാദിൽ നിന്നുള്ള സിറ്റിങ് എം

ഹസർനഗർ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന സിറ്റിങ് എം

എ യായ ഉത്തം കുമാർ റെഡ്ഡി നാൽഗോണ്ട ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് ജനവിധി തേടുന്നത് മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ മകളായ കെ

ആം ആദ്മി പാർട്ടി പ്രകാശ്ജിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട് നിലവിലെ മണ്ഡലത്തിലെ സിറ്റിംഗ് എം

ജെ

മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല

ഡോ റാം മനോഹർ ലോഹ്യയ്ക്ക് അദ്ദേഹത്തിന്റെ ജയന്തി ദിനത്തിൽ പ്രധാനമന്ത്രി ബ്ലോഗിലൂടെ ആദരാഞ്ജലി അർപ്പിച്ചു കിറ്റ് ഇന്ത്യ സമര കാലത്ത് നേതൃനിരയിലുള്ള നേതാക്കൾ എല്ലാവരും പിടിയിലായപ്പോഴും ഡോ ലോഹ്യ സ്വാതന്ത്ര്യത്തിനായുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയതെന്നും ശ്രീ നരേന്ദ്രമോദി അനുസ്മരിച്ചു ഗോവയുടെ ചരിത്രത്തിൽ ലോഹ്യയുടെ പേര് സുവർണ ലിപികളിൽ എഴുതപ്പെട്ടതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ച് പതിനായിരം ഡോളർ കൈവശം വച്ചതിനാണ് പിഴ ചുമത്തിയത് വിദേശനാണ്യ കൈകാര്യ ചട്ടപ്രക്ടാരം വിദേശകറൻസി പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ഈ ഡീ അറിയിച്ചു

ചീഫ് മെട്രോ പൊളിറ്റൻ മജിസ്ട്രേട്ട് ദീപക് ഷെരാവത്താണ് കോടതിയുടെ മുൻ ഉത്തരവ് നടപ്പാക്കാൻ സാവകാശം ആവശ്യപ്പെട്ട് സമീപിച്ചു എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റിന് നിർദ്ദേശം നൽകിയത്

നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിക്കുന്ന മൃതദേഹം പിന്നീട് വീട്ടിലേക്ക് കൊണ്ടുപോകും

കൊതുകകളിലെ രക്തപരിശോധനയുടെ ഫലവും ഇന്ന് കിട്ടുമെന്നാണ് സൂചന

പക്ഷികളിൽ നിന്ന് കൊതുകുകൾ വഴിയാണ് വെസ്റ്റ് നൈൽ വൈറസ് മനുഷ്യരിലേക്ക് പടരുന്നത്

നാളെ വരെ വയനാട് മലപ്പുറം കാസർകോട് ഇടുക്കി എന്നീ ജില്ലകളൊഴിച്ച് മറ്റു ജില്ലകളിൽ താപനിലയിൽ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വർദ്ധന ഉണ്ടാകും

മലേഷ്യ കാനഡ പോളണ്ട് ജപ്പാൻ കൊറിയ എന്നിവരാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന മറ്റ് ടീമുകൾ കഴിഞ്ഞ വർഷം ചാമ്പ്യന്മാരായ ആസ്ട്രേലിയ ഇത്തവ ണത്തെ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല

ഉദ്ഘാടന മത്സരത്തിൽ നലവിലെ ചാമ്പ്യൻ ്ക്ച്ന്നൈ സൂപ്പർ കിംഗ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിടുന ്നേരിടും